കുതിച്ചുയരുന്നു

നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന്തായി മുഖ്യമന്ത്രി പിണറായി വിജയൻ

കോവിഡ് വാക്സിനേഷനുള്ള പുതിയ ന് മാർഗ്ഗനിർദ്ദേശങ്ങൾ സംസ്ഥാനത്ത് പുറത്തിറക്കി രണ്ടാം ഡോസ് വാക്സിൻ എടുക്കുന്നവർക്ക് മുൻഗണന നൽകും

കൂടുതൽ കേന്ദ്രങ്ങളും സൌകര്യവും ഒരുക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

എൽ

എറണാകുളം കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽപ്പേർക്ക് രോഗം ബാധിച്ചത്

ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്

ഓരോ ജില്ലയിലേയും ഓക്സിജൻ സ്റ്റോക്ക് കണക്കാക്കുന്നതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓക്സിജൻ മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഇതു സംബന്ധിച്ച സ്റ്റിക്കർ പതിപ്പിക്കേണ്ടതാ ണെന്നും മുഖൃമന്ത്രി അറിയിച്ചു ഓക്സിജൻ വാർ റൂമുകൾ ജില്ലകളിൽ സജീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

സാമൂഹിക അകലം പാലിക്കാൻ കഴിയാത്ത എല്ലാ പ്രവർത്തനങ്ങളും പരമാവധി ഒഴിവാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു

കച്ചവടക്കാർ ഹോംഡെലിവറി പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു

ഇതു ശരിയായ പ്രവണതയല്ലെന്നും ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർദേശം നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു

ഓരോ വൃക്തിയും സെൽഫ് ലോക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന ആശയമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഓരോരുത്തരും മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും അനാവശൃ യാത്രകളും ആഘോഷങ്ങളും ഒഴിവാക്കുകയും രോഗബാധ ഉണ്ടാകാനിടയുള്ള സാഹചരൃത്തിൽഐസൊലേഷൻ രോഗപരിശോധന എന്നിവ നടത്തുകയും വേണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു

അറിയിപ്പ് ലഭിച്ചവർ മാത്രമേ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്താവൂ എന്ന് നിർദ്ദേശം കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു പ്രിയി വോയ്സ് സംസ്ഥാനത്ത് രണ്ടാം ഡോസ്സ് പാക്സിൻ എടുക്കുന്നവർക്ക് മുൻഗണന നൽകുമെന്നും ഇതുസംബന്ധിച്ച് ആരോഗ്യ വകുപ്പ് മാർഗ നിർദേശങ്ങൾ പുറപ്പെടുപ്പിച്ചതായും ആരോഗ്യ മന്ത്രി കെ

രണ്ടാമത്തെ ഡോസ് ക്കാനുള്ളവർക്ക് മുൻഗണന നൽകിയതിന് ശേഷം മാത്രമേ ഓൺലൈൻ ബുക്കിംഗിനായി ആദ്യ ഡോസുകാർക്ക് സ്തോട്ട് അനുവദിക്കുകയുള്ളൂ

ഓരോ വാക്സിനേഷൻ സെന്ററുകളിലും രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുക്കുവാൻ അർഹതയുള്ളവരുടെ ലിസ്റ്റ് കോവിൻ പോർട്ടലിൽ ലഭൃമാകും

തപാൽ വോട്ടുകളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ ഫലം വൈകാനിടയുണ്ട്

നിരവധി ചാനലുകളും വിവിധ ഏജൻസി കളും എക്സിറ്റ്പോൾ നടത്തിയിട്ടുണ്ട് പശ്ചിമബംഗാളിൽ ഇന്ന് അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകും വരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിറ്റ് പോളുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്

എറണ്ട്കുളം ലിറ്റിൽ ഫ്ളവർ ആശുപത്രിയിലെ അനസ്തീഷോളജിസ്റ്റ് ഡോ

ജോയ് കോട്ടയം മെഡിക്കൽ കോളേജില്ലെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ജി സോമരാജൻ എന്നിവരുടെ ് കുടുംബത്തിനാണ് ഇൻഷുറൻസ് അനുവദിച്ചത്

കേസിലെ പ്രതികൾകളായ സന്ദീപ് നായർ സരിത്ത് എന്നിവരുടെ ജാമ്യ ഉത്തരവിലാണ് കോടതിയുടെ ഈ പരാമർശം കുഴൽപ്പണ കവർച്ചു കൊടകര കുഴൽപ്പണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ യുവമോർച്ച നേതാവ് സുനിൽ നായിക്കിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കേസിൽ ഒളിവിലുള്ള പ്രതികൾക്കായി പോലീസ് ലുക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്

ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹത്തെ കൊട്ടാര്രക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യ നില മോശമായതിനെ തുടർന്ന് ഇന്ന് ഉച്ചയോടെ വെൻറില്റ്റ്റില്ലേക്ക് മാറ്റുകയായിരുന്നു

സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധിയാളുകളാണ് പ്രിയനേതാവിനെ അവസാനമായി ഒരു നോക്കു കാണാൻ എത്തിയത് കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല ഉമ്മൻ ചാണ്ടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങി ഒട്ടേറെ നേതാക്കൻമാർ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തി

ഡി എഫ് സ്ഥാനാർത്ഥികൂടിയായ വി വി പ്രകാശ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചത് സൈനിക മരണം ലഡാക്കിൽ ഹിമപാതത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൊല്ലം ചവറ സ്വദേശിയായ സൈനികൻ ഷാനവാസ് മരണമടഞ്ഞു

ഗുരുതരമായി പരുക്കേറ്റ് ലെ യിലെ സൈനിക ആശുപ്രതിയിൽ ചികിത്സയിലായിരുന്നു

ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതു വരെ ഇവ തുറന്നു പ്രവർത്തിക്കില്ലെന്ന് കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്റ്റ് അറിയിച്ചു

എൽ